സമൃദ്ധിയും ഉറപ്പാക്കാൻ ഇന്ത്യയും അമേരിക്കയും യോജിച്ചു പ്രവർത്തിക്കും

ഉത്സവവേളകൾക്കായി പ്രത്യേക കോവിഡ് ന് മാർഗനിർദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

രാജസ്ഥാൻ റോയൽസിനെതിരെ ബാറ്റിങ് തെരഞ്ഞെടുത്തു

ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ ആഭൃന്തര സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തി ദ്ധിദിന ജപ്പാൻ സന്ദർശനത്തിനായി എത്തിയ ശ്രീ ജയ്ശങ്കർ കാഡ് അംഗരാഷ്ട്രങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിനു മുന്നോടിയായാണ് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവിധ മേഖലകളിൽ ഇന്ത്യ അമേരിക്ക സഹകൂരണത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയിൽ താൻ സന്തുഷ്ടനാളണ്ണിന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു ഇന്തോ പസഫിക് മേഖ്ലയിലെ സമാധാനവും സുസ്ഥിരതയും വളർച്ചയും ഉറ്പ്പാക്കാൻ ഇരുരാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അറിയിച്ചു

ഇന്തോ പസഫിക് മേഖലയിലെ വലിയ ശക്തിയായി ഇന്ത്യയെ അമേരിക്ക അംഗീകരിക്കുന്നതിലൂടെ വരുംകാലങ്ങളിൽ ആഗോള നയതന്ത്ര ക്രമങ്ങളിൽ ശ്രദ്ധേയമായ സാന്നിദ്ധ്യമായി കാഡ് മാറുമെന്നാണ് പ്രതീക്ഷ

ജപ്പാനിലെ ടോക്യോയിൽ നടക്കുന്ന രണ്ടാമത് കാഡ് മന്ത്രിതല യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര ക്രമം സുതാര്യത അന്താരാഷ്ട്ര സമുദ്രങ്ങളിലെ വിലക്കുകളില്ലാത്ത യാത്ര പരസ്പര തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരം എന്നിവയ്ക്ക് അംഗരാഷ്ട്രങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയി എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് കാഡ് സഖ്യര്ക് ഇന്തോ പസഫിക് ആശയത്തിന് വലിയ പ്രചാരം ലഭിച്ചതിൽ ക്രേന്ദ്രമന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തി

ഒ ഹെന്റിക് ആൻഡേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി കാറ്റാടിയന്ത്രങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി ട്ടിറ്ററിൽ അറിയിച്ചു വരും തലമുറയ്ക്ക് മാലിന്യരഹിതമായ ഭാവി സമ്മാനിക്കുന്നതിനായി പുനരുപയോഗ ഉൌർജ മേഖലയിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ശ്രമങ്ങളും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു

മതപരമായ ആരാധന മേളകൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കായി ധാരാളം പേർ ഒത്തുകൂടുന്ന മാസങ്ങളാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ അണുബാധ പടരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ പാലിക്കേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രാലയം അറിയിച്ചു

സാമൂഹ്യ അകലം പാലിക്കൽ തെർമൽ സ്ക്രീനിംഗ് ശാരീരിക അകലം ശുച്ചിത്വം എന്നിവയ്ക്കായി വിശദമായ പദ്ധതി തയ്യാറാക്കാനും

ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടുനിൽക്കുന്ന പരിപാടികൾക്ക് കർശന നിയന്ത്രണം വേണം

ഐസിഎംആർ സിഎസ്ഐആർ എന്നിവയുമായി ചേർന്നാണ് ആയുഷ് മന്ത്രാലയം മാർഗരേഖ നവീകരിച്ചത്

ബ്രിട്ടീഷ് പൌരൻ റോജർ പെന്റോസ് ജർമ്മനിയുടെ ഐയ്ൻഹാർഡ് കെൻസിൽ അമേരിക്കയുടെ ആൻഡ്രിയ ഗെസ് എന്നിവർ പുരസ്കാരം പങ്കിട്ടു

താരാപഥത്തിന്റെ കേന്ദ്രത്തിൽ സൂപ്പർ മാസീവ് കോംപാക്ട് ഒബ്ജക്ട് കണ്ടെത്തിയതിനാണ് മറ്റു രണ്ടുപേർക്കും പുരസ്കാരം ലഭിച്ചത് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു

ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്

മാനദണ്ഡങ്ങൾ പാലിച്ച് ആസ്വാദകർക്കിടയിൽ ശാരീരിക അകലം നൽകി ഇരിപ്പിട ക്രമീകരണം നടത്തണം

പരിസരം ശുചിയാക്കുന്നതിന് സമയം കിട്ടുന്നതരത്തിൽ പ്രദർശനം അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു

കരസേനാ മേധാവി ജനറൽ എം

സന്ദർശ്നത്തിനിടെ മ്യാൻമർ സ്റ്റേറ്റ് കൌൺസിലർ ഓങ് സ്യാങ് സ്യൂച്ചി മ്യാന്മർ പ്രതിരോധ സേന മേധാവി തുടങ്ങിയവരുമായി ഇന്ത്യൻ സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു

എൽ ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പൃൻമാരായ മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു അബുദാബി ഷേഖ് സയദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെതിരെ ബാറ്റിങ് തെരഞ്ഞെടുത്തു

സംസ്ഥാനത്തെ എല്ലാ വീടുകളും സാമ്പത്തിക സംരംഭങ്ങളും സന്ദർശിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്

ഓൺലൈൻ പരീക്ഷകൾക്കും മറ്റുമായി സൌജന്യസേവനും എ്ന്നായിരുന്നു സന്ദേശം ഇതു വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു

ആഗോള വിപണികളിലെ ശുഭ സൂചനകളാണ് ഇന്ത്യൻ വിപണിക്ക് കരുത്ത് പകർന്നത്